പശ്ചിമബംഗാളിൽ ഏഴാംഘട്ട വോട്ടെടുപ്പ് നാളെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ

ഐ പി എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ചെന്നൈ ബംഗ്ളൂരുവിനെയും ഹൈദരാബാദ് ഡൽഹിയെയും നേരിടും

രണ്ടാം തരംഗം എല്ലാവരുടെയും ക്ഷമയെയും സഹിഷ്ണുതയുടെ പരിമിതികളെയും പരീക്ഷിക്കുകയാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനെ നേരിടാൻ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് പ്രിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ദ്ധരുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണ് രാജ്യത്തെ ഡോക്ടർമാരും ആരോഗൃപ്രിവർത്തകരും ഇപ്പോൾ കൊറോണയ് ക്കെതിരെ ഒരു പലിയ ് പോരാട്ടത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്ര സർക്കാരിൽ നിന്ന് സൌജന്യ വാക്സിൻ നൽകുന്ന പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും അത് തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലാ കമ്പനികൾക്കും അവരുടെ ജീവനക്കാർക്കും വാക്സിൻ നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ കോവിഡ് സംബന്ധിച്ചു വിവരങ്ങൾ ശരിയായ ഉറ വിടത്തിൽ നിന്ന് മാത്രം നേടണമെന്നും ുശ്രീ ്മോദി അഭ്യർത്ഥിച്ചു

ജനങ്ങളുടെ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും ഡോക്ടർമാരിൽ നിന്നടക്കം നേരിട്ട് മറുപടി ലഭ്യമാക്കാനാണ് മൻ കി ബാതിന്റെ ഈ അദ്ധ്യായത്തിൽ ഡോക്ടർമാരുടെ ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിർദ്ദേശത്തിനനുസരിച്ചു മാത്രമേ റംഡെസിവിർ ഓക്സിജൻ പിന്തുണ തുടങ്ങിയവ സ്വീകരിക്കാവൂ എന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുംബൈയിൽ നിന്നുള്ള ഡോക്ടർ ശശാങ്ക്ജോഷി അഭിപ്രായപ്പെട്ടു ആവശ്യമായി മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ആശങ്കപ്പെടാൻ ഇല്ലെന്ന് ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ നവീദ് നസീറും പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിനാണ് ഇപ്പോൾ മറ്റ് എന്ത് വിഷയത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് മൻ കി ബാതിന്റെ ഈ അദ്ധ്യായം ഉപസംഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി

കോവിഡ് വ്യാപനത്തെ തുട്ർന്ന് പ്രതിസന്ധിയിലായ ഡൽഹിയിലെ ആരോഗ്യ മേഖലയ്ക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അവശ്ല്യ സർവ്വീസുകൾക്കായി പുറത്തിറങ്ങുന്നവർ നിർബന്ധമായും മൃതിയായ രേഖകൾ കൈവശം കരുതണം

വിശദാംശങ്ങളുമായി ദേവിപ്രിയ

ടെസ്റ്റ് ട്രാക്ക് ട്രീറ്റ് ഐസോല്റ്റ് പാക്സിനേറ്റ് എന്നീ അഞ്ച് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഐ സി എം ആർ കോവിഡ് പരിശോധനകൾ നടത്തുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കണം ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള ആശുപത്രി സംവിധാനങ്ങളുടെയും മറ്റു കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുടെയും അവലോകനം നടത്താനും ലഭൃമായ കിടക്കളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്

അവശ്യസർവ്വീസുകൾക്ക് മാത്രമാണ് അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതി്രെയും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട് കല്യാണമടക്കമുള്ള ചടങ്ങുകൾക്ക് പോകുന്നവർ ആവശ്യ രേഖകൾ കരുതണം സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ചർച്ചചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇനിയുളള ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ചും നടപടികളെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും

കുന്നന്താനം വെച്ചുച്ചിറ പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് അർദ്ധരാത്രിമുതൽ ഈ മാസം ദാ വരെ നിയന്ത്രണങ്ങൾ തുടരും

രാത്രി ന് രണ്ടാം മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും